സംസ്ഥാന കേരളോത്സവത്തിൽ കോഴിക്കോട് ജില്ല മുന്നിൽ വാർത്തകൾ വിശദമായി നഗരമേഖലയിൽ പ്രധാനമന്ത്രി ആവാസ് യോജ നയ്ക്കു കീഴിൽ ഒരു കോടിയിലേറെ വീടുകൾക്ക് അനു മതി നൽകിയത് വൻനേട്ടമാണെന്ന് പ്രധാനമന്ത്രി നരേ ന്ദ്രമോദി പറഞ്ഞു നഗരങ്ങളിലെ പാവപ്പെട്ടവർക്കും മധൃ വർഗ്ഗുകാർക്കും ഇത് ഗുണം ചെയ്യുമെന്ന് മോദി ട്വിറ്ററിൽ കുറിച്ചു

രാവിലെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം ചെയ്യും ചരിത്ര കോൺഗ്രസിന്റെ നിയുക്ത അധ്യക്ഷൻ പ്രൊഫ അമിയകുമാർ ബാഗ്ചി പ്രൊഫ ഇർഫാൻ ഹബീബിൽ നിന്ന് സ്ഥാനം ഏറ്റെടുക്കും മന്ത്രി അരാമചന്ദ്രൻ കടന്നപ്പള്ളി മുഖ്യപ്രഭാഷണം നടത്തും ഇന്ത്യയിലെ പ്രമുഖരായ ചരിത്രകാരന്മാർ സമ്മേളനത്തിൽ പങ്കെടുക്കും

തിങ്ക ളാഴ് ച സമാപിക്കും

രാജ്യത്തിനകത്തും പുറത്തു നിന്നുമായി രണ്ടായിര ത്തിലധികം പ്രതിനിധികൾ പങ്കെടുക്കുന്നു സമ്മേളനം നാളെ സമാപിക്കും

ഫെസിലിറ്റേഷൻ സെന്ററിന്റെ സഹായത്തോടെ സംസ്ഥാനത്ത് സംരംഭങ്ങൾ ആരംഭിച്ചവരുടെ യോഗം പോസ്റ്റ് ഫെസിലിറ്റേഷൻ മീറ്റ് തിരുവനന്തപുരത്ത് ഉദ്ഘാ ടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പ്രവാസികളുടെ സമ്പാദ്യം കേരളത്തിന്റെ സംരഭകത്വ വാണിജൃ മേഖല കളിൽ നിക്ഷേപിക്കുക വഴി പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുവാനാകുമെന്നും മന്ത്രി പറഞ്ഞു

കേന്ദ്രഗ വൺമെന്റിന്റെ സ്ട്രാറ്റജിക് ആന്റ് പ്രോഗ്രാം ഇംപ്ലിമെ ന്റേഷൻ മന്ത്രാലയം പുറത്തു വിട്ട സർവെ പ്രകാരമാണ് വിദ്യാഭ്യാസ മേഖലയിലെ മികവിന് വീണ്ടും അംഗീകാരം ലഭിച്ചതെന്ന് മന്ത്രി സി രവീന്ദ്രനാഥ് ഫേസ്ബുക്ക് പോസ്റ്റിൽ അറിയിച്ചു

ശക്തമായ അടിത്തറയോടു കൂടിയ ജനകീയ വിദ്യാ ഭ്യാസ സംവിധാനത്തിന്റെ വിജയമാണ് നമ്മുടെ സംസ്ഥാ നത്തിന് ലഭിച്ച ഈ അംഗീകാരമെന്ന് മന്ത്രി അഭിപ്രായ പ്പെട്ടു

ജനസംഖ്യാ രജിസ്റ്റർ പാവങ്ങൾക്കു മേൽ ഏർപ്പെടുത്തിയ നികുതിയാണെന്ന രാഹുൽഗാന്ധിയുടെ പ്രസ്താവനയോട് ന്യൂഡൽഹിയിൽ പ്രതികരിക്കുകയാ യിരുന്നു അദ്ദേഹം പാവങ്ങളെ സഹായിക്കാൻ ശരിയായ നടപടിയാണ് എൻ പി ആർ എന്നും ജാവ്ദേക്കർ പറ ഞ്ഞു അനധികൃത കുടിയേറ്റക്കാരെ തടയാനാഗ്രഹിക്കു ന്നതുകൊണ്ടാണ് കോൺഗ്രസ് ഇതിനെ എതിർക്കുന്ന തെന്നും ജാവ്ദേക്കർ കുറ്റപ്പെടുത്തി

പ്രകാശ് ജാവ്ദേക്കറുടെ പ്രസ്താവനയോട് പ്രതികരിക്കുകയായി രുന്നു അദ്ദേഹം

ന്യൂഡൽഹിയിലെ പാർട്ടി ആസ്ഥാനത്ത് രാവിലെ കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി പതാക ഉയർത്തുന്നതോടെ സ്ഥാപക ദിന ചടങ്ങുകൾക്ക് തുടക്കമാകും ക്കകകകക കെ പി സി സി യുടെ നേതൃത്വത്തിൽ പൌരത്വ നിയമ ഭേദഗതിയ്ക്കെതിരെ തിരുവനന്തപുരത്ത് ഇന്ന് രാവിലെ മഹാറാലിയും പ്രതിഷേധ സംഗമവും നടക്കും പാളയം രക്തസാക്ഷി മണ് ഡ പത്തിൽ പുഷ്പാർച്ചനയ്ക്കു ശേഷം രാജ്ഭവനിലേയ്ക്കാണ് റാലി മുതിർന്ന കോൺഗ്രസ് നേതാവ് പി ചിദംബരം ഉദ്ഘാ ടനം ചെയ്യും പൌരത്വനിയമം ഉണ്ടാക്കുന്ന പ്രതിസന്ധി ഏതെങ്കിലും ഒരു മതത്തിന്റെ പ്രശ്നമല്ലെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ പറഞ്ഞു മത നിരക്ഷേപ തയുടെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ച് ഈ പ്രശ്നത്തെ നേരിടണമെന്ന് അദ്ദേഹം പറഞ്ഞു മലപ്പുറത്ത് സി പി ഐ സ്ഥാപക ദിനാചരണം ഉദ്ഘാടനം ചെയ്യുകയായി രുന്നു കാനം രാജേന്ദ്രൻ ക്കലലലല പൌരത്വ നിയമ ഭേദഗതിയെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനായി ബിജെപി രാജ്യവ്യാപകമായി നടത്തുന്ന പ്രചരണ പരിപാടിയുടെ ഭാഗമായി കണ്ണൂരിൽ ചൊവ്വാഴ്ച ജനജാഗ്രതാ സമ്മേളനം നടത്തും പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും

തിരുവനന്തപുരം എന്നിവിടങ്ങളിലും സമാനമായ രീതിയിൽ റാലികൾ സംഘടിപ്പിക്കും ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ കേരള ബ്ലാസ് റ്റേഴ്സ് ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡുമായി ഏറ്റുമുട്ടും വൈകീട്ട് ഏഴരക്ക് കൊച്ചിയിലാണ് മത്സരം കഴിഞ്ഞ കളിയിൽ ചെന്നൈയിൻ എഫ്സിയോട് തോറ്റ ബ്ലാസ്റ്റേഴ്സ് ഒമ്പത് കളിയിൽ ഏഴ് പോയിന്റുമായി പട്ടികയിൽ ഒമ്പതാം സ്ഥാനത്താണ് പ്ലേ ഓഫ് സാധ്യതകൾ നിലനിർത്തണമെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് ഇന്ന് ജയം അനിവാര്യമാണ് ലുധിയാനയിൽ ദേശീയ സീനിയർ ബാസ്കറ്റ് ബോൾ വനിതാ വിഭാഗം ഫൈനലിൽ കേരളം ഇന്ന് റെയിൽവേയെ നേരിടും

ചാമ്പ്യൻഷിപ്പിൽ എല്ലാ മത്സരത്തിലും വിജയിച്ചാണ് കേരളിവനിതകൾ കുതിക്കുന്നത് ദേശീയ ബധിര കായിക മേളയുടെ മത്സരങ്ങൾ ഇന്ന് കോഴിക്കോട്ട് തുടങ്ങും അത്ലറ്റിക്സ് ഫുട്ബാൾ വോളിബാൾ ബാഡ്മിൻൺ ടേബിൾ ടെന്നീസ് ജൂഡോ റസലിംഗ് മത്സരങ്ങൾ ഇന്നു നടക്കും

തിരുവന്തപുരത്ത് സംസ്ഥാന കേരളോത്സവത്തിൽ കോഴിക്കോട് ജില്ല മുന്നിൽ

മണ്ഡലപൂജ പൂർത്തിയാക്കി ശബരിമല നട അടച്ചു ക്ഷേത്ര മേൽശാന്തി എ കെ സുധീർ നമ്പൂതിരി ഇന്നലെ രാത്രി പത്തിന് നട അടച്ചശേഷം സോപാനത്തിൽ നമസ്കരിച്ചു തങ്കഅങ്കി ചാർത്തി നടന്ന മണ്ഡലപൂജ കണ്ട് തൊഴാൻ വൻഭക്തജന തിരക്കായി രുന്നു ശബരിമലയിൽ മകരവിളക്ക് ഉത്സവത്തിനായി നട മറ്റന്നാൾ വൈകിട്ട് അഞ്ചിന് തുറക്കും

് പാലുത്പാദന മേഖലയിലെന്ന പോലെ കോഴിമുട്ട കോഴിയിറച്ചി മേഖലയിലും സ്വയംപര്യാപ്തത കൈവ രിക്കുകയാണ് ലക്ഷ്യമെന്ന് മന്ത്രി കെ രാജു പറഞ്ഞു കാസർകോട് ബിരിക്കുളം കൂടോലിൽ ബ്രഹ്മഗിരി ഡെവ ലപ്മെന്റ് സൊസൈറ്റിയുടെ മലബാർ മീറ്റ് സാദിയ അഡീഷണൽ പ്രൊഡക്ഷൻ യൂണിറ്റ് ഉദ്ഘാ ടനം ചെയ്യുകയായിരുന്നു മന്ത്രി

ക്ഷീര വിക സന വകുപ്പിന്റെയും കാസർകോട് ജില്ലയിലെ ക്ഷീര സഹകരണ സംഘങ്ങളുടെയും സംയു ക്താഭിമുഖ്യത്തിൽ കാഞ്ഞങ്ങാട് രാവണേശ്വരത്ത് നട ത്തിയ ജില്ലാ ക്ഷീര കർഷക സമ്മേളനത്തിൽ സംസാ രിക്കുകയായിരുന്നു മന്ത്രി

മന്ത്രിയുടെ ഓഫീസിലാണ് ചർച്ച

നിയമസഭ പരിസ്ഥിതി സമിതി റിപ്പോർട്ട് മാർച്ചിൽ ഗവൺമെന്റിന് സമർപ്പിക്കുമെന്ന് ചെയർമാൻ മുല്ലക്കര രത്നാകരൻ പറഞ്ഞു കോഴിക്കോട്ട് നിയമസഭ പരിസ്ഥിതി സമിതി സിറ്റിംഗിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത് കഴിഞ്ഞ വർഷവും ഈ വർഷവുമുണ്ടായ വെള്ളപ്പൊക്കത്തിന് ശേഷം വളരെയേറെ മാറ്റങ്ങൾ പ്രകൃതിയിലുണ്ടായിട്ടുണ്ട് നിയമസഭാ പരിസ്ഥിതി സമിതി ഗവൺമെന്റിന് നൽകുന്ന റിപ്പോർട്ടിൽ ഇക്കാര്യങ്ങൾക്ക് പ്രാമുഖ്യം നൽകുമെന്ന് അദ്ദേഹം പറഞ്ഞു

വോട്ടർ പട്ടിക പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് ജില്ലയിലെ പ്രവൃത്തി പുരോഗതി ജില്ലാ കലക്ടർ ടി വി സുഭാഷിന്റെ സാന്നിധൃത്തിൽ ചേർന്ന യോഗത്തിൽ അദ്ദേഹം വിലയിരുത്തി

വി കെ ശ്രീകണ്ഠൻ എം പി രണ്ട് ദിവസത്തെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും

മലപ്പുറം കോട്ടക്കുന്ന് ടൂറിസം പാർക്കിൽ നടക്കുന്ന മേള മലബാറിന്റെ സാംസ് കാരിക പ്രദർശനത്തിനും വേദിയാവും പ്രിപാടിയുടെ ഉദ്ഘാടനം നാളെ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ നിർവഹിക്കും തിരുവന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ദ ലോ ട്രസ്റ്റിന്റെ ജസ്റ്റിസ് വി

കൃഷ്ണയ്യർ പുരസ്കാരം എം

വാസുദേവൻ നായർക്ക് മറ്റന്നാൾ വൈകിട്ട് കോഴിക്കോട്ട് മിസോറാം ഗവർണർ പി

ശ്രീധരൻ പിള്ള സമ്മാനിക്കും